ചടങ്ങുകൾ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ച്

എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനും ചെന്നൈ സൂപ്പർ കിംഗ്സിനും വിജയം വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രമുഖ ആഗോള എണ്ണ പ്രകൃതി വാതക കമ്പനി മേധാവികളുമായി സംവദിക്കും നിതി ആയോഗ് സംഘടിപ്പിക്കുന്ന വാർഷിക പരിപാടിയിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരിക്കും മുഖാമുഖ പരിപാടി ലോകത്തെ എണ്ണ ഉപയോഗത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ പ്രകൃതി വാതക ഇറക്കുമതിയിൽ നാലാം സ്ഥാനക്കാരാണ്

ഇ ഒമാർ പ്രധാനമന്ത്രിയുമായി ചടങ്ങിൽ സംവദിക്കും രുര കാസർകോട്ട് ടാറ്റ ഗ്രൂപ്പ് സൌജന്യമായി നിർമ്മിച്ച് നൽകിയ കോവിഡ് ആശുപത്രി മറ്റന്നാൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി കെ

ഇപ്പോൾ കോവിഡ് ആശുപത്രിയായി പ്രവർത്തനം തുടങ്ങുമെങ്കിലും രോഗ നിയന്ത്രണത്തിന് ശേഷം സാധാരണ ആശുപത്രിയാക്കി ഇതിനെ മാറ്റുമെന്ന് മന്ത്രി അറിയിച്ചു

രും കോവിഡ് വ്യാപനത്തിനെതിരായ പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ച് നിന്ന് ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി ടി

മാസ്ക്കും സാമൂഹിക അകലവും പൊതു ഇടങ്ങളിലും വീടുകളിലും ശീലമാക്കണമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് കായണ്ണ ചെറുക്കാട് നിർമ്മിച്ച വനിതാ മൾട്ടി പർപ്പസ് സെന്റർ നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി കായണ്ണ കാപ്പുമ്മൽ ആദിവാസി കോളനിയിൽ നിർമ്മിച്ച സാംസ്ക്കാരിക നിലയവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു രുര ഈ ദുരന്തകാലം മാറി അധികം വൈകാതെ ലോകം പഴയ നിലയിലേക്ക് തിരികെ പോകുമെന്ന പ്രത്യാശ പങ്കുവെക്കുകയാണ് മലയാളത്തിൻെറ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം മുകുന്ദൻ

കുട്ടികളുടേയോ പ്രായമായവരുടേയോ രോഗബാധ വർദ്ധിച്ചാൽ അവിടെ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും ജില്ലയിൽ കോവിഡ് വ്യാപന തോത് ഉയർന്ന സാഹചര്യത്തിലാണ് കർശന നടപടികൾ രംഭ അന്യസംസ്ഥാന യാനങ്ങൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മീൻ പിടിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം അനുമതി നൽകി ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും കോവിഡ് പരിശോധന പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്ന യാനങ്ങൾക്കാണ് അനുമതി

സംവരണത്തിന്റെ അടിസ്ഥാനപ്രമാണത്തെ തകർക്കുന്ന തീരുമാനം അടിയന്തിരമായി നിർത്തിവെക്കണമെന്നും ജനസംഖ്യാനുപാതികമായി സംവരണ തോത് പുനഃക്രമീകരിക്കണമെന്നും യോഗത്തിന് ശേഷം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലികുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

ഇക്കാര്യം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ എറണാകുളത്ത് സംവരണ സമുദായങ്ങളുടെ അടിയന്തിര യോഗം ചേരും പെൺകുട്ടികളുടെ വിവാഹ പ്രായം ഉയർത്തുന്ന കേന്ദ്ര തീരുമാനം ആശങ്കാജനകമാണെന്ന് യോഗം വിലയിരുത്തി സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഒപ്പം വ്യക്തി സ്വാതന്ത്ര്യത്തിൻെറ പ്രശ്നവും ഇതിലുണ്ടെന്ന് സംഘടനാ നേതാക്കൾ അഭിപ്രായപ്പെട്ടു

അറിവിന്റെ അക്ഷര ലോകത്തേക്ക് കുരുന്നുകളുടെ ആദ്യ ചുവട് കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്ന് നൽകുന്ന എഴുത്തിനിരുത്തിനും കോവിഡ് വിലങ്ങിട്ടിരിക്കുകയാണ് നിയന്ത്രണങ്ങൾ പാലിച്ച് വീടുകളിലും അപൂർവ്വം കേന്ദ്രങ്ങളിലും മാത്രമാണ് ഇന്ന് എഴുത്തിനിരുത്തൽ ചടങ്ങ് തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ ഇത്തവണ എഴുത്തിനിരുത്തില്ല മറ്റ് പ്രമുഖ ക്ഷേത്രങ്ങളിലും വിദ്യാരംഭ കേന്ദ്രങ്ങളിലും പരിമിതമായ തോതിൽ മാത്രമായിരിക്കും ചടങ്ങുകൾ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ പുലർച്ചെ എഴുത്തിനിരുത്ത് തുടങ്ങി

എഴുത്തിനിരുത്ത് ചടങ്ങുകൾ പരമാവധി വീടുകളിലാക്കണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരുന്നു നാവിൽ സ്വർണ്ണംകൊണ്ട് അക്ഷരം കുറിക്കുന്ന ചടങ്ങുകളിൽ ഒരു കുഞ്ഞിന് ഉപയോഗിച്ച സ്വർണ്ണം മറ്റൊരു കുട്ടിയിൽ ഉപയോഗിക്കാൻ പാടില്ല എഴുത്തിനിരുത്തുന്ന ആളും എഴുത്തിനിരുത്തിയ കുഞ്ഞും ചടങ്ങിന് മുമ്പും ശേഷവും കൈകൾ ശുചിയാക്കണമെന്നും നിർദ്ദേശമുണ്ട് അരിയിൽ എഴുതിക്കുന്നിടത്ത് അരിയും തളികയും അവരവർ കൊണ്ടുവരേണ്ടതാണ് ദേശീയ ബാലതരംഗം വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങ് നടത്തുന്നുണ്ട് സംസ്ഥാനതല ചടങ്ങ് തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജഗതിയിലെ വീട്ടിൽ ഉദ്ഘാടനം ചെയ്യും

ക്ഷേത്രങ്ങളിൽ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിജയദശമി ആഘോഷങ്ങൾ രുര അനശ്വര നടൻ പ്രേംനസീറിന് ജന്മനാടായ ചിറയൻകീഴിൽ ഒരുങ്ങുന്ന സ്മാരക സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ച കഴിഞ്ഞ് സാംസ്കാരിക മന്ദിരത്തിന് ഓൺലൈനിൽ തറക്കല്ലിടും

നാല് കോടി രൂപ ചെലവിൽ ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിന് സമീപമാണ് നിത്യഹരിത നായകന്റെ സ്മാരകം ഉയരുന്നത് രുര കുറ്റകൃത്യങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങളും കണ്ടെത്തുന്ന സംവിധാനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പൊലീസ് ആസ്ഥാനത്ത് തയ്യാറാക്കിയ അത്യാധുനിക പരിശീലന കേന്ദ്രം ഇൻസൈറ്റ് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും

ആലപ്പുഴയിലെ ജില്ലാ പൊലീസ് ട്രെയിനിംഗ് സെന്ററും മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യും മന്ത്രി ജി സുധാകരൻ അധ്യക്ഷനായിരിക്കും രുര കൊല്ലം ജില്ലാ ആസൂത്രണ സമിതി മന്ദിരം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി നാടിന് സമർപ്പിക്കും ജില്ലാ പ്ലാനിംഗ് ഓഫീസ് എക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ടൌൺ പ്ലാനിംഗ് ഓഫീസ് എന്നിവ ആസൂത്രണ സമിതി മന്ദിരത്തിൽ പ്രവർത്തിക്കും മന്ത്രി കെ രാജു താക്കോൽദാനം നിർവ്വഹിക്കും

ദുബായിൽ നിലവിൽ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ എട്ട് വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് തറ പറ്റിച്ചത്

ഇന്ന് ഷാർജയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും രും കണ്ണൂർ പറശ്ശിനിക്കടവിൽ വാട്ടർ ടാക്സി അനുവദിക്കുമെന്ന് മന്ത്രി എ